ദേശീയ പാതാ വികസനമടക്കം പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെ ടുക്കുമ്പോൾ വീട് നഷ്ടപ്പെടുന്നവരെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ൾ ൽ ൾ ജമ്മു കശ്മീർ ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ യിൽ അവതരിപ്പിക്കും

പ്രമേയം ശബ്ദവോട്ടോടെയാണ് പാസ്സാക്കിയത്

ബിജെപിയും ആർഎസ്എസും ഇന്ത്യയുടെ വൈവിധ്യത്തെയും ഐക്യത്തെയും അംഗീകരിക്കുന്നി ല്ലെന്നതിന് തെളിവാണിതെന്ന് സിപിഐഎം കേന്ദ്രകമ്മറ്റി അംഗവും മന്ത്രിയുമായ ഇ

ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

ദേശീയപാതാ വികസനമടക്കം പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെ ടുക്കുമ്പോൾ വീട് നഷ്ടപ്പെടുന്നവരെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട ടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇവർക്ക് മറ്റ് വീടുകൾ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയായിരിക്കും നടപടി ഈ വർഷം അവസാനത്തോടെ രണ്ട് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കും ഓരോ ജില്ലയിലേയും വീട് നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ മന്ത്രി മാർക്ക് ചുമതല നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ലൈഫ് മിഷൻ പ്രവർത്തനം അവലോകനം ചെയ്യവെ അറിയിച്ചു

കേരളത്തിന്റെ മികച്ച ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളാണ് കുറഞ്ഞ മാതൃ ശിശു മരണ നിരക്കിന് കാരണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു കുറഞ്ഞ മാതൃ മരണ നിരക്ക് രേഖപ്പെടു ത്തിയ സംസ്ഥാനമായി നിതി ആയോഗ് ഇത്തവണയും കണ്ടെത്തി യത് കേരളത്തെയാണ് സ്മാർട്ട് അംഗ്ന്റൻവാടി കെട്ടിട നിർമ്മാണ ത്തിന്റേയും ലോക മുലയൂട്ടൽ വാരത്തിന്റേയും സംസ്ഥാനതല ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി

യൂണിവേഴ്സിറ്റി കോളജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതിക ളായ ആർ ശിവരഞ്ജിത്തും പി

പ്രണവും സിവിൽ പൊലീസ് ഓഫീ സർ പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതായി പിഎസ്സി ആഭ്യന്തര വിജിലൻസ് വിഭാഗം കണ്ടെത്തി പരീക്ഷയുടെ ഉത്തരങ്ങൾ എസ് എംഎസ് ആയി ലഭിച്ചെന്നാണ് നിഗമനം ഇതേ തുടർന്ന് ഇവരെ റാങ്ക് പട്ടികയിൽ നിന്ന് നീക്കാൻ പിഎസ്സി തീരുമാനിച്ചു

നസീമിനെയും പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് മൂന്നു പേരെയും ആജീവനാന്തം പിഎസ്സി പരീക്ഷയെഴുതുന്നതിൽ നിന്നു വിലക്കി ഇവരെ മറ്റു മത്സരപരീക്ഷകൾ എഴുതിക്കരുതെന്ന് യുപിഎസ്സി ഉൾപ്പെടെ ഏജൻസികളോട് ആവശ്യപ്പെട്ടു വിഷയത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ പൊലീസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യാനും പിഎസ്സി തീരുമാനിച്ചു

ശേഷിക്കുന്ന വില്ലേജുകളിൽ ഉടൻ തന്നെ മെഷിനു കൾ ലഭ്യമാക്കും സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കോഴിക്കോട് മലപ്പുറം ഇടുക്കി ജില്ലക ളിൽ വ്യാഴാഴ്ച്ച അതിശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് മുതൽ ഈ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും കാലാ വസ്ഥാ കേന്ദ്രം അറിയിച്ചു

കണ്ണൂർ പാലക്കാട് കോഴിക്കോട് കാസർകോട് ആലപ്പുഴ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് മുതൽ ഒൻപതാം തീയതി വരെ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട്

മലയോര മേഖ ലയിലെ കനത്ത മഴയിൽ വലുതും ചെറുതുമായ എട്ടോളം പുഴകൾ കര കവിഞ്ഞു

തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകൻ കെ

ബഷീർ കാറി ടിച്ചു മരിച്ച സംഭവത്തിൽ സർവേ ഡയറക്ടർ ശ്രീരാം വെങ്കട്ടരാ മന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജൂഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും

അന്വേഷണത്തിലും തെളിവെടുപ്പിലും തിരുവനന്തപുരം മ്യൂസിയം പൊലീസിന് ഗുരുതര വീഴ്ച്ചയുണ്ടായെന്ന് കണ്ടെത്തിയ തിനെ തുടർന്നാണ് പുതിയ സംഘത്തെ നിയോഗിച്ചത് മ്യൂസിയം സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ജയപ്രകാശിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ബഷീറിന്റെ കൂടുംബത്തിന് അമ്പത് ലക്ഷം രൂപ നഷ്ട പരിഹാ രമായി നൽകുന്നതിനൊപ്പം ഭാര്യയ്ക്ക് ഗവൺമെന്റ് ജോലി നൽക ണമെന്നും കേരള പത്ര പ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസി ഡന്റ് കമാൽ വരദൂറും ജനറൽ സെക്രട്ടറി സി നാരായണനും കോഴി ക്കോട്ട് ആവശ്യപ്പെട്ടു

അമേരിക്ക യിലെ രണ്ടു മത്സരങ്ങളും ജയിച്ചതിനാൽ അപ്രധാന കളിയെന്ന നില യിൽ പുതിയ കളിക്കാർക്ക് അവസരം നൽകിയേക്കും രാത്രി എട്ടിന് പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് കളി

പൂൾ ഡിയിലെ അവസാന കളിയിൽ തായ്ലന്റിനോട് തോറ്റെങ്കിലും ഇന്ത്യ കാർട്ടർ ഉറപ്പിച്ചു നേരത്തെ ന്യൂസിലാന്റിനെയും ചൈനയെയും ഇന്ത്യ തോൽപ്പിച്ചിരുന്നു സഹകരണ സ്ഥാപനങ്ങൾ സൌരോർജ്ജ നിലയം സ്ഥാപിക്കാൻ തയ്യാറായാൽ അനർട്ട് മുഖേന സബ്ബ്സിഡി ലഭ്യമാക്കാൻ നടപടിയെടു ക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വലിയ വീടുക ളിൽ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി കെട്ടിട നിർമ്മാണ വൃവസ്ഥയിൽ മാറ്റം വരുത്താൻ നിയമനിർമ്മാണം നട ത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു

കണ്ണൂർ കോർപ്പറേഷൻ മേയർക്കെതിരെ യുഡിഎഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി

തിരുവനന്തപുരം ശ്രീപത്മനാഭസ്ഥാമി ക്ഷേത്രത്തിലെ നിറപുത്തരി ഉത്സവത്തിനാവശ്യമായ നെൽക്കതിർ നിയമസഭാ വളപ്പിലെ നെൽകൃ ഷിയിൽ നിന്ന് നൽകും നിയമസഭയുടെ സ്ഥലത്ത് ജൈവ കൃഷിയിലൂടെ വിളയിച്ച നെല്ല് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ തിരു വനന്തപുരം മേയർക്ക് രാവിലെ കൈമാറും

ഇയാൾ കർണാടകയിൽ ഒളിവിൽ കഴിയു കയായിരുന്നുവെന്ന് പൊലീസ് സൂചന നൽകി അമ്പലവയലിൽ ലോഡ്ജിൽ താമസിച്ചിരുന്ന യുവാവിനേയും യുവതിയേയും ഭീഷ ണിപ്പെടുത്തി പുറത്തിറക്കിയ ശേഷം അവരെ ആക്രമിക്കുകയായി രുന്നു എന്നാണ് കേസ് ഹോർട്ടികോർപ്പിന്റെ തേൻ അധിഷ്ഠിത മൂല്യ വർദ്ധിത ഉൽപ്പ ന്നങ്ങളുടെ വിപണനം തിരുവനന്തപുരത്ത് മന്ത്രി വി

ചക്ക കൈതച്ചക്ക ഞാവൽ കാന്താ രി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ തേനിൽ സംസ്ക്കരിച്ചാണ് ഉൽപ്പ ന്നങ്ങൾ മാവേലിക്കരയിലെ തേൻ സംസ്ക്കരണശാലയിൽ നിർമ്മി ക്കുന്നത് ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന തൊഴിലാളികൾക്ക് മറ്റ് ക്ഷേമ പെൻഷനുകൾ നിഷേധിക്കുന്ന ഗവൺമെന്റ് നടപടി പുനപരിശോ ധിക്കണമെന്ന് എഐടിയുസി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു രണ്ട് പെൻഷനുകൾ കൂടിച്ചേർന്നാലും നാമമാത്ര തുകയാണ് തൊഴിലാളിക്ക് ലഭിക്കുന്നത് കുറഞ്ഞ പെൻഷൻ ആറായിരം രൂപയാക്കണമെന്ന ആവശ്യം നിലനിൽക്കെ ഈയൊരു നടപടിയിൽ എൽഡിഎഫ് ഗവൺമെന്റിന്റെ നിലപാട് ശരിയല്ലെന്നും രാജേന്ദ്രൻ കൊല്ലത്ത് പറഞ്ഞു ദേവികുളം ഗ്യാപ്പ് റോഡിലെ മലയിടിച്ചിലിന് കാരണം അമിത മായ പാറ ഖനനമാണെന്നും തുടർ നിർമ്മാണത്തിന് അനുമതി നൽകു ന്നതിന് മുൻപ് സാങ്കേതിക ഏജൻസിയുടെ പഠനം ആവശ്യമാ ണെന്നും ദേവികുളം സബ്കളക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ട റിക്ക് റിപ്പോർട്ട് നൽകി

ഗതാഗതം പുനരാരംഭിക്കാൻ ശ്രമങ്ങൾ തുടരു കയാണ്

തലപ്പുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കോളജ് ക്യാമ്പസുകളിലെ റാഗിങ്ങിനെതിരെ ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മാ നിഷാദ എന്ന് പേരിൽ റാഗിങ്ങ് വിരുദ്ധ പ്രചാരണത്തിന് തുടക്കമിട്ടു മുട്ടം എംജി യൂണിവേഴ്സിറ്റി കോളജ് ഓഫ് എഞ്ചിനിയറിങ്ങിൽ ജില്ലാ ജഡ്ജി മുഹമ്മദ് റസീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ആത്മഹത്യ ചെയ്ത കണ്ണൂരിലെ പ്രവാസി വൃവസായി സാജന്റെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ബിജെപി ഇന്ന് പുതിയതെരു അരയമ്പേത്ത് ഉപവാസം നടത്തും സംസ്ഥാന സെക്രട്ടറി എ

രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും ടാക്സി ഡ്രൈവർമാരുടെ ആദ്യ സംസ്ഥാനതല സംരംഭം കണ്ണൂ രിൽ നിലവിൽ വന്നു കേരാ കാബ്സ് എന്ന പേരിൽ രൂപീകരിച്ച കമ്പനി ഡ്രൈവർമാർക്ക് ജോലി സ്ഥിരതയും സംസ്ഥാന വൃാപക മായി ഏകീകൃത നിരക്കും നൽകുമെന്ന് കമ്പനി ഉടമകൾ അറിയി ച്ചു